പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്കുശേഷം പുറപ്പെടും

മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകൃതിക്കാൻ ഗവർണർ എൻ സി

യെ ക്ഷണിച്ചു

കശ്മീർ താഴ്വരയിൽ ഔഗ്സ്റ്റ് മൂന്നു മുതൽ നിർത്തിവച്ച ട്രെയിൻ ന് സർവ്വീസ് ഇന്ന് പുനരാർംഭിക്കും

ദോഹയിൽ നടക്കുന്ന പി എസ്

ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സൌരവ് ഘോഷൽ ഇന്ന് പ്രീക്വാർട്ടർ മത്സരത്തിനിറങ്ങും

വ്യവസായ സഹകരണം ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന ഏജൻസികൾ ഇന്നലെ ഒപ്പിട്ടു ബ്രിക്സ് രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഇന്നലെ ബ്രസീലിയയിലായിരുന്നു ചടങ്ങ്

നാളെ ചേരുന്ന ബ്രിക്സ് കൌൺസിൽ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകും

പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞ ആർസ്റ്റ് മൂന്ന് മുതൽ സർവ്വീസ് നിർത്തിവച്ചിരിക്കുകയായിരുക്കു ശ്രീനഗറിൽ നിന്നും ബാരാമുള്ള വരെ ട്രെയിൻ പരീക്ഷണ ഓട്ടം നട്ത്തി ശ്രീനഗറിൽ നിന്നും ജമ്മു മേഖലയിലേക്കുള്ള സർവ്വീസ് അടുത്ത ഘട്ടമായി ആരംഭിക്കും

പഞ്ചാബിലെ കപൂർത്തല ജില്ലയിൽ സുൽത്താൻപൂർ ലോധിയിൽ നടക്കുന്ന ആഘോഷത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കും

പ്രകാശ പർവ്വ് ദിനാഘോഷത്തിനായി പഞ്ചാബിലെ നഗരങ്ങളെല്ലാം തയ്യാറെടുത്തു കഴിഞ്ഞു

വിദേശത്ത് ദുബായ് കാഠ്മണ്ഡു തുടങ്ങിയ സ്ഥലങ്ങളിലും ഗുരുനാനാക്ക് ദേവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

കൂടുതൽ സമയം വേണമെന്ന ശിവസേനയുടെ ആവശ്യം ഗവർണർ അംഗീകരിച്ചില്ല

സി

ഇന്നലെ രാത്രി എൻ സി പി നേര്യാക്കൾ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി സഖ്യക്കക്ഷികളുമായി ചർച്ച ചെയ്തതിനുശേഷം തീരുമാനം അറിയിക്കുമെന്ന് എൻ സി

സമയപരിധി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ആദിത്യ താക്കറെയുടെ നേതൃത്വത്തിൽ ശിവസേന സംഘം ഗവർണറെ സന്ദർശിച്ച് പിന്തുണ കത്തുകൾ ലഭ്യമാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു

സി പി യെയും കോൺഗ്രസിനെയും സഖ്യകക്ഷികളാക്കി ഗവൺമെന്റ് രൂപീകരിക്കാനായിരുന്നു ശിവസേനയുടെ നീക്കം

എന്നാൽ ശിവസേനയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം നീണ്ടു

ഇതിനിടെ തിങ്കളാഴ്ച രാവിലെ ശിവസേനയുടെ ഏക കേന്ദ്രമന്ത്രി അരവിന്ദ് സാവന്ത് രാജിവച്ചു

ഡി എ സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ശിവസേനയ്ക്ക് ഇതോടെ കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതായി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിരുല്ല ഓൾ ഇന്ത്യ റേഡിയോ ആസ്ഥാനത്ത് ഇന്ന് പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്

ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനം ശക്തമാണെന്നും ലോകത്തിലെ തന്നെ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

നയങ്ങളിലെ മാറ്റവും ശരിയായ ഏകീകരണവും വഴി വളർച്ച കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയുമെന്നും മന്ത്രി മുംബൈയിൽ പറഞ്ഞു

ഫലം അംഗീകരിക്കില്ലെന്നും റീ കൌണ്ടിങ് നിർത്തണമെന്നും അഫ്ഗാൻ ചീഫ് എക്സിക്യൂട്ടീവ് അബ്ദുള്ള അബ്ദുള്ള ആവശ്യപ്പെട്ടിരുന്നു വോട്ടെണ്ണലിനെ ചൊല്ലി അബ്ദുള്ളയും പ്രസിഡന്റ് അഷ്റഫ് ഖനിയും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഫലപ്രഖ്യാപനം നീളുകയാണ്

വ്യാഴാഴ്ച ഫലം പ്രഖ്യാപിക്കുമെന്നാണ് ഒടുവിൽ അറിയിച്ചത് ഇത് വീണ്ടും നീട്ടിവയ്ക്കാനാണ് സാധ്യതയെന്ന് അധികൃതർ പറഞ്ഞു

എസ്

ഈജിപ്തിന്റെ രണ്ട്ടും ്നമ്പർ താരം മുഹമ്മദ് എൽ ഷോർബാഗിയാണ് എതിരാളി ക്യൂഞ്ച് താരം ലൂക്കാസ് സെർമിയെ തോൽപ്പിച്ചാണ് സൌരവ് ബ്ലോസ്റൽ പ്രീ കാർട്ടറിൽ എത്തിയത്

ഉത്തരകൊറിയയുടെ കിം സോങ് ഗൂക്കിനാണ് സ്വർണ്ണം ലോകകപ്പിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണ്ണമെഡൽ ജേതാവാണ് സൌരഭ് ചൌധരി

ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡി അനിൽ കുമാറും ബി ജെ പി പ്രതിനിധിയായി എം

ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ സിപി

എമ്മിനുവേണ്ടി കെ

കൌൺസിൽ കാലാവധി പൂർത്തിയാകാൻ ഇനി ഒരു വർഷം ബാക്കിയുണ്ട്

ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലും സമീപത്തെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും ശുദ്ധജലവിതരണം നടത്തുന്ന ജലവിതരണ പദ്ധതിയിലെ അമ്പലപ്പുഴ തിരുവല്ല ഭാഗത്തെ ഒപ്പപ്പുകൾ ആണ് മാറ്റുന്നത് നിയമസഭാ മന്ദിരത്തിൽ മന്ത്രിമാരായ കെ കൃഷ്ണ്ൻകുട്ടി ജി

ജോലികൾ പൂർത്തിയാകുന്നതുവരെ ആർ

പ്ലാന്റ് കൂഴൽകിണർ ടാങ്കർ ലോറികൾ തുടങ്ങിയ എല്ലാ മാർഗങ്ങളും ഉപയോർട്ടിച്ച് കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാനും യോഗത്തിൽ ്തീരുമാനമായി

ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു അതിനിടെ കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാലിലേക്ക് ഖരമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും സ്വീവേജ് മാലിന്യങ്ങൾ ഒഴുക്കുന്നതു നിരോധിച്ച് ഗവൺമെന്റ് ഉത്തരവിട്ടു